പ്രതിഷേധിക്കുന്ന കർഷക ്സംഘടനകളെ വീണ്ടും ചർച്ചയ്ക്ക് വിളിച്ച് ക്ട്രേന്ദ് സർക്കാർ

ഇന്ത്യ ഓസ്ട്രേലിയ രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിന് നാളെ മെൽബണിൽ തുടക്കം

രാജ്യത്തെ ഒമ്പത് കോടി കർഷക കുടുംബങ്ങൾക്ക് ഇതിന്റെ ഗുണം ലഭിക്കും

കൂടുതൽ വിവരങ്ങളുമയി കൃഷ്ണ

ആറ് സംസ്ഥാനങ്ങളിലെ ക്ട്ർഷ്കരുമായി പ്രധാനമന്ത്രി ആശയവിനിമയം നടത്തും പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ പദ്ധതിയുടെ അനുഭവങ്ങൾ ്കർഷകർ പങ്കുവയ്ക്കും

ഗുണഭോക്താക്കൾക്ക് മൂന്ന് ഗഡുക്കളായി തുക നേരിട്ട് അവരുടെ അക്കൌണ്ടുകളിൽ ലഭിക്കും

ന്യൂസ് ഡെസ്ക് ആകാശവാണി

അടുത്ത ഘട്ട ചർച്ചയ്ക്കുള്ള തീയതിയും സമയവും തീരുമാനിക്കാൻ അറിയിച്ച് കേന്ദ്രം സംഘടനകൾക്ക് കത്തയച്ചു തുറന്ന മനസ്സോടെ ചർച്ചകൾ നടത്താനും പ്രതിഷേധിക്കുന്ന കർഷകർ ഉന്നയിക്കുന്ന യുക്തിസഹജമായ പരിഹാരങ്ങളിൽ പ്രശ്നങ്ങളിൽ എത്തിചേരാനും കേന്ദ്ര സർക്കാർ തയാറാണെന്ന് കാർഷിക മന്ത്രാലയ ജോയിന്റ് സെക്രട്ടറി വിവേക് അഗർവാൾ കത്തിൽ വ്യക്തമാക്കി

സദ്ഭരണ ദിവസമായി ഈ ദിനം ആചരിക്കുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാർലമെന്റിൽ നടക്കുന്ന ചടങ്ങിൽ വാജ്പേയിയുടെ ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തും

വാജ്പേയിയുടെ പാർലമെന്റ് പ്രസംഗങ്ങളും അപൂർവ്വ ചിത്രങ്ങളും മറ്റും അടങ്ങുന്നതാണ് പുസ്തകം

പ്രധാമന്ത്രി എന്ന നിലയിൽ ശക്തവും ധീരവുമായ പരിഷ്കരണ നടപടികൾ അദ്ദേഹം സ്വീകരിച്ചു

വീഡിയോ കോൺഫറൻസ് വഴി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കർഷക കൂട്ടായ്മകളെ അഭിസംബോധന ചെയ്യും

ജെ

പ്രധാനമന്ത്രിയുടെ കിസാൻ സമ്മാൻ നിധി ധനസഹായ വിതരണ ് പരിപാടി ഗുജറാത്തിൽ ഉൾനാടൻ മേഖലകളിലടക്കം തസ്മയം കാണിക്കാനുള്ള സംവിധാനമൊരുക്കി

കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ജമ്മുകശ്മീർ ലഫ്റ്റനന്റ് ജനറൽ മനോജ് സിൻഹ തുടങ്ങിയവരും ചടങ്ങിൽ ് പങ്കെടുക്കും ജമ്മുകശ്മീർ നിവാസികൾക്ക് ഈ പദ്ധതിയിലൂടെ സൌജന്യ ഇൻഷറൻസ് പരിരക്ഷ ലഭ്യമാകും ഓരോ കുടുംബത്തിനും അഞ്ച് ലക്ഷം രൂപയുടെ ഇൻഷറൻസ് പരിരക്ഷയാണ് ലഭ്യമാകുക

ഫാസ്റ്റ് ടാഗ് നിർബന്ധമാക്കുന്നതിലൂടെ യാത്രക്കാർക്ക് ടോൾ ബൂത്തുകളിൽ കാശ് അടയ്ക്കാൻ സമയം ചെലവഴിക്കേണ്ടതില്ല ഇതുവഴി സമയവും ഇന്ധനവും ലാഭിക്കാൻ കഴിയുമെന്നും അദ്ദേഹം പറഞ്ഞു

ലോകം എന്നും പ്രത്യാശയോടെ ആഘോഷിക്കുന്നു ക്രിസ്മസിന് ഇത്തവണ പതിവ് പകിട്ടും തിരക്കുമില്ല

ഹ്നോൾഡ് വോയ്സ് മഹാമാരിയിൽ നിന്ന് മോചനത്തിന് പോരാടുന്ന ലോകം കോവിഡ് അടിച്ചേൽപ്പിച്ച നിയന്ത്രണങ്ങൾ പാലിച്ചാണ് തിരുപ്പിറവിയുടെ സ്മരണ പുതുക്കുന്നത് യാത്രാവിലക്കുകളും നിയന്ത്രണങ്ങളും മൂലം പലരും ഉറ്റവരിൽ നിന്ന് അകലെയാണ് ഈ ക്രിസ്മസ് ദിനത്തിൽ

വത്തിക്കാനിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ കുർബാനയും കോവിഡ് മാനദണ്ഡങ്ങൾക്ക് വിധേയമായാണ് നടക്കുന്നത് ലോകത്തോടുള്ള ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ എട്ടാമത് ക്രിസ്മസ് സന്ദേശം ഇന്നുണ്ടാകും

ശാന്തിയുടെയും സമാധാനത്തിന്റെയും സന്ദേശങ്ങൾ പങ്കുവച്ച് ദേവാലയങ്ങളിൽ പാതിരാകുർബാനയും പ്രാർത്ഥനയും നടന്നു വിവിധ ക്രൈസ്തവ സഭാ മേലധ്യക്ഷന്മാർ ചടങ്ങുകൾക്ക് മുഖ്യകാർമ്മികത്വം വഹിച്ചു

കോവിഡ് മാനദണ്ഡങ്ങൾ കർശനമായി പാലിക്കണം രോഗം പടരാത്തവിധത്തിൽ ആൾക്കൂട്ടങ്ങൾ ഒഴിവാക്കി വേണം ആഘോഷമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അഭ്യർത്ഥിച്ചു

അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്താനുള്ള തങ്കയങ്കിയും വഹിച്ചുള്ള ഘോഷയാത്ര ഇന്ന് ഉച്ചയോടെ പമ്പയിൽ എത്തിച്ചേരും

ആദ്യ ടെസ്റ്റിൽ ഓസ്ട്രേലിയയോട് തോൽവി ഏറ്റുവാങ്ങിയതിനാൽ ഈ മത്സരം ഇന്ത്യയുടെ അഭിമാന പോരാട്ടമാണ് ബാറ്റിംഗിലേയും ഫീൽഡിംഗിലേയും പാളിച്ചകൾ പരിഹരിച്ചാകും ഇന്ത്യ മത്സരത്തിനിറങ്ങുക

ഫുട്ബോളിൽ നാളെ നടക്കുന്ന മത്സരത്തിൽ ചെന്നൈയിൻ എഫ്